ജെ

കാലാവസ്ഥ കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധൃതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം

പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയുള്ളതിനാൽ ഇന്ന് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചതിയി കേന്ദ്ര കാലാസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴ വെള്ള്പ്പൊക്കം ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും സാധൃതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്